മഹാരാഷ്ട്രയിൽ ബി ജെ

ജെ പി ഇന്ന് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശം ഉന്ന യിച്ചേക്കും

ജെ

ഇന്ത്യൻ നാഷണൽ ലോക് ദളും ഹരിയാന ലോഹിത് പാർട്ടിയും കക്ഷിരഹിതരും മറ്റിടങ്ങളിൽ വിജ യിച്ചു

ജെ പി ശിവസേന സഖ്യം ഭൂരിപക്ഷം നേടി

ജെ

കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേ ക്ഷിച്ച് ബി ജെ

മുഖ്യമന്ത്രി സ്ഥാനം രണ്ടര വർഷം വീതം പങ്കിട്ണമെന്നാണ് ശിവസേനയുടെ ആവശ്യം

ജെ

മറ്റു സീറ്റുകളിൽ പ്രാദേശിക കക്ഷികൾക്കാണ് വിജയം ബിഹാറിലെ സമ സ്തിപൂർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ലോക് ജന ശക്തി പാർട്ടിയും മഹാരാഷ്ട്രയിലെ സത്താറയിൽ എൻ

പിയും വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഇന്ന് തിരുവനന്തപു രത്ത് ചേരും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്ന അരൂ രിലെ തോൽവി ആയിരിക്കും പ്രധാന ചർച്ചാ വിഷയം തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് പുതിയ ആളെ നിശ്ചയിക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയാവും സമുദായത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചതിന് ജനം നൽകിയ തിരിച്ചടിയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു ഗവൺമെന്റിന്റെ പ്രപ്പർത്തനങ്ങൾക്ക് ലഭിച്ചഅംഗീകാരമാണ് ഫലം പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ യു ഡിഎഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് വിജയം നേടിയതെന്നും കാനം കുറ്റ പ്പെടുത്തി കാലാകാലങ്ങളായി യു ഡി എഫ് വിജയിക്കുന്ന മണ്ഡലങ്ങ ളിലെ പരാജയ കാരണങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണ ക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അറിയിച്ചു മഞ്ചേശ്വരം ഉൾപ്പെടെ മൂന്നിടത്തെ യു ഡി എഫിന്റെ വിജയം തികച്ചും അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തെ പാലാ മോഡൽ തോൽവിക്ക് കാരണം രാഷ്ട്രീയമല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

സ്ഥാനാർത്ഥി നിർണയങ്ങളിലെ തർക്ക ങ്ങളും അനൈകൃവും മുന്നൊരുക്കത്തിലെ വീഴ്ചകളു മാണ് പരാജയ കാരണമെന്ന് അദ്ദേഹം കോഴിക്കോട് പറ ഞ്ഞു വട്ടിയൂർക്കാവിലെയും കോന്നിയിലെയും പരാജയം യു ഡി എഫിൽ ചർച്ച ചെയ്യണമെന്ന് ലീഗ് സംസ്ഥാന ഉന്നതാ ധികാര സമിതിയംഗം സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു മലപ്പുറം താനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു അഞ്ചുടി കുപ്പാന്റെ പുരയ്ക്കൽ ഇസ്ഹാഖാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാമ് സംഭ വം നേരത്തെ മുസ്ലിം ലീഗ് സിപിഐഎം സംഘർഷം ഉണ്ടായിരുന്ന പ്രദേശമാണിത് അക്രമത്തിൽ പ്രതിഷേ ധിച്ച് യു ഡി എഫ് ഇന്ന് പൊന്നാനി തവനൂർ തിരൂർ പരപ്പനങ്ങാടി മേഖലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു രാവിലെ ആറ് മുതൽ വൈകീട്ട് ആറു വരെയാണ് ഹർത്താൽ വന്യ ജീവി സങ്കേതങ്ങൾ ദേശീയോദ്യാനങ്ങൾ എന്നീ സംര ക്ഷിത പ്രദേശങ്ങളോട് ചേർന്ന മനുഷ്യവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഒരു കിലോമീറ്റർ പരിധി പരിസ്ഥിതിലോല മേഖലയാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു ഇതിനായി കരട് വിജ്ഞാപന നിർദേശങ്ങളിൽ മാറ്റം വരു ത്തും ഈ പരിധിക്ക് പുറത്ത് ഖനനമുൾപ്പെടെ വനേ തര പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയ ന്ത്രണം ഇതോടെ ഇല്ലാതാവും നേരത്തെ സംരക്ഷിത മേഖലയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഖനന മുൾപ്പെടെ വനേതര പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ ബദൽ നിർദേശ ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കിലോമീറ്റർ പരി സ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നത് ഗോവ മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ ഇതിനകം നിർദേശം നട പ്പിലാക്കിയിട്ടുണ്ട് ലോല മേഖ്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര വനൃജീവി ബോർഡിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ് ബിടെക് പരീക്ഷ തോറ്റ വിദ്യാർത്ഥികൾക്ക് അധിക മാർക്ക് നൽകിയ വിവാദ തീരുമാനം മഹാത്മാഗാന്ധി സർവകലാശാലാ സിൻഡിക്കേറ്റ് പിൻവലിച്ചു നടപടി വിവാദമായതിനെ തുടർന്ന് പുനപരിശോധിക്കണമെന്ന ഗവൺമെന്റ് നിർദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് ഏപ്രിൽ മുപ്പതിനു കൈക്കൊണ്ട തീരുമാനം പിൻവലിച്ചത് തുടർ നടപടികൾക്ക് സർവകലാശാലാ രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി കോഴിക്കോട് കൂടത്തായി കൊലക്കേസിൽ പൊലീസ് കസ്റ്റ ഡിയിൽ കഴിയുന്ന മുഖ്യപ്രതി ജോളിയുമായി ഇന്നലെ കൂടുതൽ തെളിവെടുപ്പ് നടത്തി പുലിക്കയത്തെ വീട്ടിലും കൂടത്തായി പൊന്നാമറ്റം വീട്ടിലും താമരശേരിയിലെ ദന്താശുപത്രിയിലുമായിരുന്നു തെളിവെടുപ്പ് ജോളിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലി യുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു വിവര ശേഖ രണം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ കൊച്ചിയിലെ രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനു തോൽവി മുംബൈ സിറ്റി എഫ് സി മറുപടിയില്ലാത്ത് ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത്

എസ് എല്ലിൽ ഇന്ന് എ

കെ കൊൽക്കത്ത ഹൈദരാ ബാദ് എഫ്

വൈകീട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം പാറ്റ്നയിൽ ദേശീയ ജൂനിയർ ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേര്ളം ജേതാക്കൾ ഫൈനലിൽ ഛത്തീസ്ഗഢിനെ യാണ് കേരളം തോൽപ്പിച്ചത് ആൺകുട്ടികളുടെ വിഭാ ഗത്തിൽ രാജസ്ഥാനെ പരാജയപ്പെടുത്തി പഞ്ചാബ് ജേതാക്കളായി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായി നാളെ കുട്ടനാട്ടിലെ കൈനകരയിൽ വള്ളംകളി നടക്കും സംസ്ഥാനത്തെ ജലോത്സവങ്ങളെ കോർത്തിണക്കിയാണ് ടൂറിസം വകുപ്പ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സംഘടിപ്പിക്കുന്നത് ഇതുവരെ ഏഴ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ നടുഭാഗം ചുണ്ടൻ ഒന്നാം സ്ഥാനത്തുംസ കാരിച്ചാൽ ചുണ്ടൻ രണ്ടാം സ്ഥാനത്തുമാണ് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയു ണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ക്യോഴിക്കോട് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടുത്ത രണ്ടു ദിവസം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദേശമുണ്ട്

ഇരിട്ടി മാക്കൂട്ടം റോഡിൽ മരം വീണ് ഒരു മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു

പലയിടങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചു കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ ആരംഭിക്കുന്ന ജെൻഡർ പാർക്കിൽ അന്താരാഷ്ട്ര വനിതാ വ്യാപാര കേന്ദ്രം തുട ങ്ങുമെന്ന് മന്ത്രി കെ

മ്യൂസിയം ലൈബ്രറി നൈപുണ്യ വികസന കേന്ദ്രം എന്നിവയും പാർക്കിൽ ആരംഭിക്കും

പ്പജി സ്മാരക പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി കേരള എൻ

ഒ അസോസിയേഷൻ നാൽപ്പത്തി അഞ്ചാം സംസ്ഥാന സമ്മേളനം ഇന്ന് കണ്ണൂരിൽ തുടങ്ങും വൈകുന്നേരം കണ്ണൂർ സ്റ്റേഡിയു ക്യോർണറിൽ പൊതുസമ്മേളനം കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മൂന്നു ദിവസത്തെ സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട് തുടങ്ങും രാവിലെ പ്രതിനിധി സമ്മേളനം സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനംചെയ്യും അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മറിയം ധാവ്ളെ പ്രസിഡന്റ് മാലിനി ഭട്ടാചാര്യ മന്ത്രിമാരായ കെ കെ ശൈലജ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും

സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും മറ്റന്നാൾ രാവിലെ ഭാരതീയ ദർശനങ്ങളുടെ ജനപക്ഷ സദസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൊന്നാനി അഴിമുഖത്ത് നിർമിക്കുന്നു തൂക്കുപാലത്തെ കുറിച്ച് ജനങ്ങളുടെ നിർദേശങ്ങൾ പങ്കു വെക്കാൻ പൊന്നാനിയിൽ സംഘടിപ്പിച്ച് ചടങ്ങ് സ്പീക്കർ പി ശ്രീ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യത്തൊഴിലാളി പരിശീലന കേന്ദ്രം കോഴിക്കോട് വെസ്റ്റിഹിലിൽ വൈകീട്ട് മന്ത്രി ജെ മേഴ്സി ക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കടൽ സുരക്ഷ മൊബൈൽ ആപ്പ് കടൽചെങ്ങായി ചടങ്ങിൽ അവതരിപ്പിക്കും കൊയിലാണ്ടി ഗവ മാപ്പിള വൊക്കേഷണൽ ഹയർസെ ക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടവും മന്ത്രി ഉദ്ഘാ ടനം ചെയ്യും

തൃശൂർ മുതൽ കാസർകോഡ് വരെ അപകട മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ആംബുലൻസു കൾ വിന്യസിക്കുന്നത്

പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ചിറ്റൂർ ജി വി ജി ഹയർസെക്കൻഡറി സ്കൂളിൽ ഇന്ന് തുടങ്ങും രണ്ട് ദിവസത്തെ ശാസ്ത്രോത്സവം മന്ത്രി കെ കൃ ഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും കേരള ജല അതോറിറ്റിയുടെ ചിറ്റൂർ പ്രൊജക്ട് ഡിവിഷൻ ഓഫീസും മറ്റൊരു ചടങ്ങിൽ രാവിലെ മന്ത്രി ഉദ്ഘാ ടനം ചെയ്യും വയനാട് മാന്തവാടി ബേഗൂർ റെയ്ഞ്ചിലെ സ്വാഭാവിക വന മായി മാറിയ തേക്ക് പ്ലാന്റേഷൻ മരങ്ങൾ വെട്ടിമാറ്റി വീണ്ടും തേക്ക് നട്ട് പിടിപ്പിക്കണമെന്ന ഉത്തരവിനെതിരെ നഗരസഭയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു

ഇടുക്കിയിലെ കാർഷിക മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധ തിയുടെ ഇപ്പോഴത്തെ വ്യവസ്ഥകൾ കൃഷി ജോലികൾക്ക് അപര്യാപ്തമാണെന്നും എം പി പറഞ്ഞു